വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയതായിരിക്കാമെന്ന് ഐ

ചെയർമാൻ ഡോ

സംസ്ഥാനത്തെ റെയിൽവേ വികസന കാര്യത്തിൽ അടുത്തമാസം തീരുമാനമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഓണക്കാലത്ത് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം എല്ലാ വരും പാലിക്കണമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ഇന്തൃ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ ആദൃ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും

മുന്നിലുള്ള വെല്ലുവിളി എങ്ങനെ നേരിട ണമെന്ന് ഗവൺമെന്റിന് അറിയാമെന്നും അദ്ദേഹം വൃക്തമാക്കി

യുടെ ജനആശിർവാദ് യാത്രയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെ റോത്തക്കിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായി രുന്നു പ്രധാനമന്ത്രി നൂറുദിവസത്തിനകം ഒട്ടേറെ സുപ്രധാന തീരുമാ നങ്ങളെടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു

ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും മുത്തലാക്ക് ക്രിമി നൽകുറ്റമാക്കിയതും ഗവൺമെന്റിന്റെ നൂറുദിന കാലയളവിലെ സുപ്ര ധാന നേട്ടങ്ങളാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിപ്രായപ്പെട്ടു രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നൂറുദിവസത്തെ റിപ്പോർട്ട് കാർഡ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക മാന്ദ്യം താൽക്കാലി കമാണെന്നും ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അടിത്തറ് ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു വിദേശനിക്ഷേപത്തിന്റെയും ആഭ്യന്തര ആവശ്യങ്ങ ളുടെയും കുതിപ്പിലൂടെ ആഭ്യന്തര വളർച്ച അധികം വൈകാതെ ഉയരു മെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുമ്പില്ലാത്തവിധം ചരിത്രപരമായ ഒട്ടേറെ തീരുമാനങ്ങൾ ഗവൺമെന്റ് കൈക്കൊണ്ടതായും ജാവദേക്കർ പറഞ്ഞു ചെറുകിട വ്യാപാരികൾക്ക് സംരക്ഷണം കർഷകർക്ക് സാമ്പ ത്തികസഹായം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരായ പ്രചാ രണ പരിപാടികൾ അഴിമതിക്കാർക്കെതിരായ നടപടികൾ തുടങ്ങിയവ ഗവൺമെന്റിന്റെ നേട്ടങ്ങളായി അദ്ദേഹം എടുത്തുകാട്ടി രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ നൂറുദിനങ്ങളിൽ രാജ്യത്ത് ഒരു വികസനവുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി നേതൃത്വ പോരായ്മയും പദ്ധതികൾ നടപ്പാക്കുന്നതിലെ ദിശാബോധമില്ലായ്മയുംകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികമേഖല തകർന്നിരിക്കുകയാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു തുടർച്ചയായി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്നും മാധ്യമസ്ഥാപനങ്ങളെ അടി ച്ചമർത്തുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി രാജ്യത്തെ തകർന്ന സമ്പദ് വൃവസ്ഥയെക്കുറിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് മൌനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്ര ട്ടറി പ്രിയങ്കാ ഗാന്ധി ടിറ്ററിൽ ആരോപിച്ചു രാജ്യത്തെ ഇപ്പോഴത്തെ സ്ഥിതി മൂടിവെക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നും അവർ ആരോ പിച്ചു

ചെയർമാൻ ഡോ

ഇതുമൂലം വിക്രം മൊഡ്യൂളിന് കേട് സംഭവിച്ചോയെന്ന് വ്യക്തമ ല്ലെന്നും അദ്ദേഹം ബെംഗളുരുവിൽ പറഞ്ഞു ലാൻഡറുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമം തുടരുകയാണെന്നും ഇസ്രോ ചെയർമാൻ അറിയി ച്ചു ചന്ദ്രോപരിതലത്തിലെ തടസ്സങ്ങളാവാം ലാൻഡറിൽനിന്ന് സിഗ്നലു കൾ ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് ചന്ദ്രയാൻ ഒന്നിന്റെ ഡയറക്ടറാ യിരുന്ന മയിലസാമി അണ്ണാദുരൈ അഭിപ്രായപ്പെട്ടു ലാൻഡറിനെ കണ്ടെ ത്താനായെന്നും ഇനി ബന്ധം സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു സോഫ്റ്റ് ലാൻഡിന് കഴിയാത്ത സ്ഥല ത്തായിരിക്കാം ലാൻഡർ പതിച്ചിരിക്കുന്നതെന്നും ഈ സ്ഥലവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടാ വാമെന്നും അണ്ണാദുരൈ പറഞ്ഞു

മുൻ ശാസ്ത്രജ്ഞൻ എ ശിവതാണുപിള്ള അറിയിച്ചു ബഹിരാകാശ പദ്ധതി യിൽ ലോകത്തെ നാല് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് ദൂരദർശൻ ന്യൂസിന്റെ വാർ ആൻഡ് പീസ് പരിപാടിയിൽ അദ്ദേഹം അഭിപ്രായപ്പെ ട്ടു

സംസ്ഥാനത്തെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ സാന്നിധൃത്തിൽ അടുത്തമാസം ചേരുന്ന യോഗ ത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

പൊതുവിഷയങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോഴി ക്കോട് വിമാനത്താവളങ്ങളിൽ സാധാരണക്കാരനുകൂടി യാത്രചെയ്യാൻ ഉതകുന്ന തരത്തിൽ യാത്രാസംവിധാനം നടപ്പാക്കേണ്ടതുണ്ടെന്നും തല ശ്ശേരി പൌരാവലി നൽകിയ സ്വീകരണത്തിൽ മുരളീധരൻ പറഞ്ഞു

നദികൾ ശുദ്ധമായിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണം പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി നേരിടുന്ന കുട്ടനാട്ടിലെ പ്രശ്ന ങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓണത്തിന് റേഷനരിയും പഞ്ചസാരയും നൽകാതെ ഗവൺമെന്റ് ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റ പ്പെടുത്തി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ഓണക്കാലത്ത് എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിച്ചിരുന്ന റേഷൻ പഞ്ചസാര ഈ വർഷം നൽകേണ്ടെന്ന് തീരുമാനിച്ച ഗവൺമെന്റ് നടപടി കടുത്ത് ജനവഞ്ചനയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സ്സ്ഥാനത്ത് എല്ലാ റേഷൻക ടകളിലും ആട്ടയ്ക്കും പുഴുക്കലരിക്കും കനത്തക്ഷാമം അനുഭവപ്പെടു കയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഓണക്കാലത്ത് അവശ്യ സാധന ങ്ങൾ റേഷൻ കടകളിൽ ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് പൂർണ പരാ ജയമാണെന്ന് പ്രതിപക്ഷനേതാവ് പറഞ്ഞു ചരിത്രത്തിന്റെ നാൾവഴികളിൽ പലതും മറന്നു തുടങ്ങിയെങ്കിലും മലയാളികൾ വിസ്മരിക്കാത്ത ആഘോഷമാണ് ഓണമെന്ന് നിയമസഭാ സ്പീക്കർ പി

കൊച്ചിയിൽ സംസ്ഥാന വിനോദസഞ്ചാരവുകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഡി

വൈകീട്ട് ടാഗോർ ഹാളിൽ മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മാനാഞ്ചിറയിലെ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം പഞ്ചാരിമേളം നാട്ടരങ്ങ് എന്നിവ നടക്കും ഓണം പൂജകൾക്കായി ശബരിമലനട ഇന്ന് വൈകിട്ട് തുറക്കും മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരി നടതുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിയിക്കും നാളെ പുലർച്ചെ നടക്കുന്ന അഷ്ടദ്രവൃ മഹാ ഗണപതിഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും

രണ്ട് ടെസ്റ്റുകളാണ് ദക്ഷിണാ ഫ്രിക്ക എ ടീം ഇന്ത്യ എ ടീമുമായി ഈ പര്യടനത്തിൽ കളിക്കുന്നത്

അഞ്ച് ഏകദിനങ്ങൾ ഉൾപ്പെട്ട പരമ്പ നാലിലും ജയിച്ച് ഇന്ത്യ സ്വന്തമാക്കിയിരു ന്നു കോഴിക്കോട് നടക്കുന്ന സൌത്ത് ഇന്ത്യൻ ഇന്റർസ്കൂൾ ബാസ് ക്കറ്റ്ബാൾ ചാംപ്യൻഷിപ്പിൽ ആതിഥേയരായ സിൽവർ ഹിൽസ് ഹയർസെക്കൻഡറി സ്കൂൾ ഫൈനലിൽ പ്രവ്യേശിച്ചു സെമിയിൽ ബെംഗളുരു കോട്ടൺ സ്കൂളിനെയാണ് അവർ പുരാജയപ്പെടുത്തിയത് വനിതാവിഭാഗത്തിൽ സിൽവർഹിൽസിനെ പരാജയപ്പെടുത്തി ലിറ്റിൽഫ് ളവർ കൊരട്ടി ഫൈനലിൽ കടന്നു ഫൈനൽ മത്സരങ്ങൾ രാവിലെ നട ക്കും സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള പ്രദേ ശങ്ങളെക്കുറിച്ച് വിപ്പിധ് ഗവേഷണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാനും കരുതൽ നടപടി സ്വീകരിക്കാനും തദ്ദേ ശഭരണ സ്ഥാപനങ്ങൾ ഗ്രാമ വാർഡ് സഭകൾ വിളിച്ചുചേർക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മിഷൻ നിർദ്ദേശം നൽകി മലപ്പുറം കവ ളപ്പാറയിലെ ദുരന്തമേഖല സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മി ഷൻ നിർദ്ദേശം ദുരിതബാധിതർക്ക് അനുവദിച്ച അടിയന്തര ധനസഹായം വർധിപ്പിക്കണമെന്നും കമ്മിഷൻ ആവശ്യപ്പെട്ടു കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലും ശാന്തിഗിരി കൈലാസം പടിയിലുമായി രണ്ട് വീട് പൂർണ്ണമായും രണ്ട് വീട് ഭാഗികമായും തകർന്നു കേളകം അടക്കാത്തോട് മേഖലയിൽ ഭൂമി യിൽ വിള്ളൽ വർധിച്ചു

സോയിൽ പൈപ്പിങ് പ്രതിഭാസത്തെത്തുടർന്നുണ്ടായ വിള്ളലിന്റെ തോത് മഴ ശക്തമായതിനെത്തുടർന്ന് കൂടിയിട്ടുണ്ട്

ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

ബംഗാളിലെ സൌത്ത് ഫർഗാന സ്വദേശി അത്തിയാസ് റഹ്മാൻ ഷെയ്ഖിനെയാണ് പിതൃസഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പിടികൂടിയത് ടൈൽസ് പ്രവൃത്തിക്കായാണ് ഇയാൾ കേരളത്തിലെത്തിയത് ഇടുക്കി ജില്ലയിലെ ബാങ്കിങ് സേവനം ലഭ്യമല്ലാതിരുന്ന ഗ്രാമീണ മേഖലയിൽ നിരവധി പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുംശേഷം ആരംഭിച്ച സ്റ്റേറ്റ് ബാങ്ക് ശാഖകൾ അടച്ചുപൂട്ടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം

കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമന് അയച്ച കത്തിൽ അറിയിച്ചു ഇതര ബാങ്കുകളുടെ ശാഖകൾ ഇല്ലാത്തിടത്തുനിന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ എസ്

പിന്മാറുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെങ്കര ആവോലി വാരപ്പെട്ടി ശാഖകൾ മാറ്റുന്നതിനെതിരെ ഇടപെട ണമെന്നും ഡീൻ കുര്യാക്കോസ് കത്തിൽ ആവശ്യപ്പെട്ടു തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ ചെക്ക് കേസിൽ സത്യം ജയി ച്ചെന്ന് എസ്

യോഗം ജനറൽസെക്രട്ടറി വെള്ളാപ്പള്ളി നടേ ശൻ ആലപ്പുഴയിൽ പറഞ്ഞു കിട്ടിയ അവസരം മുതലാക്കി കോൺഗ്ര സിലെ ചില നേതാക്കളും സമുദായം ഉപേക്ഷിച്ച ചിലരും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം ആരോപിച്ചു പുകവലി മദ്യപാനം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കിറ്റ് ടു കെയർ പദ്ധതി തുടർപ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ച് ശക്തിപ്പെടുത്തുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു ജില്ലാ ലീഗൽ സർവീസ് അതോറ്റിയുടെ സഹായത്തോടെ കിറ്റ് കെയർ കോർഡിനേഷൻ കമ്മറ്റി സംഘടിപ്പിച്ച പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പോപ്പു ലർഫ്രണ്ട് ചാവക്കാട് ഏരിയാ പ്രസിഡന്റ് അറക്കൽ ജമാലുദീനാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറാ യി കോഴിക്കോട് കായണ്ണ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മാലിന്യ സംസ് കരണ പ്രക്രിയയുടെ ഭാഗമായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനമായി ജില്ലാ കലക്ടർ സ്വാംബശിവറാവു ആക്ഷൻ കമ്മിറ്റി മെമ്പർമാരുമായി നടത്തിയ ചർച്ചയെ ്തുടർന്നാണ് എം

കോതമംഗലത്ത് ഭൂതത്താൻകെട്ട് ഓണംഫെസ്റ്റിന്റെ ഭാഗമായി ഫോർവീലർ മഡ്റെയ്സ് സംഘടിപ്പിച്ചു

ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ട റുകൾ തുറന്നിട്ടിരിക്കുന്നതിനാൽ വെള്ളം വറ്റിയ റിസർവോയറിലാണ് മഡ്റെയ്സ് സംഘടിപ്പിച്ചത്

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു

കോട്ടയം ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖൃത്തിൽ കാഴ്ചപരിമി തർക്കായി ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും ഇന്ന് നടക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം